ഐ

സി

അധൃക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കും

ഡി എഫിനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ലോക്സ്ഭാ തിരഞ്ഞെടുപ്പിൽ ന് സ്ഥാനാർത്ഥികളുടെ ്തിരഞ്ഞെടുപ്പ് ചെല്വ് നിരീക്ഷിക്കാൻ സ്ക്വിധാനം ശക്തമാക്കി പുതിയ സാമ്പത്തിക വർഷം നാളെ തുടങ്ങുന്നു

ബജറ്റിൽ പ്രഖ്യാപിച്ച നിരക്ക് മാറ്റങ്ങളും പരിഷ്കാര ങ്ങളും നാളെ നിലവിൽ വരും

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

ഹൈദ്രാബാദ് ബാംഗ്ലൂരിനെയും ചെന്നൈ രാജസ്ഥാനെയും നേരിടും

ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ്സ് നേതാവ് എ

ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ശ്രീ അന്റണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇതോടെ വയനാട്ടിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായി സംസ്ഥാന ഘടകം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ദേശീയ നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു വെന്ന് എ

ഉത്തർപ്രദേശിലെ അമേഠിക്ക് പുറമെയാണ് ശ്രീ

ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥിയായി നീശ്ച്യിച്ചിരുന്ന ടി സിദ്ദിഖിനെ മാറ്റിയാണ് രാഹുൽ എത്തുന്നുത്ര് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം ഉൌർജ്ജിതമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു

എഫിനുണ്ടെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേള നത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീ രാഹുലിനെ പരാജയപ്പെടുത്താനായിരിക്കും തങ്ങളുടെ ശ്രമം അദ്ദേഹം മത്സരി ക്കുന്നതുകൊണ്ട് വയനാട്ടിലെ എൽ

എഫ് സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മൂന്നോളം മണ്ഡലങ്ങളിൽ കോ ലീ ബി സഖ്യത്തിനുള്ള ഒത്തുകളി നടക്കുന്നുണ്ടെന്നും ശ്രീ

രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുൽഗാന്ധിയുടെ തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമാണ് മുൻ കെ

സി സി അധ്യക്ഷൻ വി

സുധീരൻ തീരുമാനം ജനാധിപത്യ മതേതര കേരളത്തിന് അഭിമാനകരവും കേരള രാഷ്ട്രീയചരിത്രത്തിലെ അത്യുജ്ജല അധ്യായവുമാണെന്ന് അദ്ദേഹം അഭിപ്രായുപ്പെട്ടു

വോയിസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ നടത്തുന്ന ചെലവുകൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി

ചെലവ് നിരീക്ഷണത്തിന് ഫ്ളെയിംഗ് സ്കാഡുകൾ നിയമസഭാ മണ്ഡലത്തിൽ പരിശോധനകൾ ആരംഭിച്ചു എല്ലാ ചെക്ക് പോസ്റ്റുകളിലും നഗരമേഖലകളിലും സ്റ്റാറ്റിക് സർവയലൻസ് സ്കാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് വാഹനങ്ങളിലും പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ റാലികൾ തുടങ്ങിയവ നിരീക്ഷിക്കുന്നതിന് വീഡിയോ സർവയലൻസ് സ്കാഡുകളും രംഗത്തുണ്ട് ഓരോ പരിപാടിയുടെയും ചെലവ് കണക്കാക്കി സ്ഥാനാർത്ഥിയുടെ ചെലവിലേയ്ക്ക് ചേർക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രസിഡന്റ് ചിലി സന്ദർശനം ത്രിരാഷ്ട്ര സന്ദർശനത്തിട്ട് ഭാഗമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചിലിയിലെത്തിട് സാന്റെയിഗോ വിമാനത്താവളത്തിൽ ചിലിയിലെ സ്ഥാനപ്പതിമാരും ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണമാണ് കഴിഞ്ഞ രാത്രി നൽകിയത് സന്ദർശന വേളയിൽ അദ്ദേഹം ചിലി പ്രസി ഡന്റുമായി കൂടിക്കാഴ്ച നടത്തും പൊതു പാല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും തുടർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വ്യവസായ സമ്മേളനത്തിൽ പങ്കെടുക്കും

ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായു ഐ എസ് ആർ ഒ യും സംയുക്തമായിട്ടുണ്ട് എമിസാറ്റ് നിർമ്മിച്ചത്

ഇയാളെ കൂടുതൽ ചോദ്യാ ചെയ്യേണ്ടതുണ്ടെന്നും മുൻ സംഭവങ്ങളിൽ ബന്ധമുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും പോലീസ് അറിയിച്ചു

കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ പ്രഖ്യാപിച്ചു നിരക്കു മാറ്റങ്ങളും പരിഷ്കാരങ്ങളും നാളെ പ്രാബല്യത്തിൽ വരും വിശദാംശങ്ങളുമായി ഷീജ ഗണേഷ് വോയിസ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും നൽകുന്ന സേവനങ്ങളുടെ ഫീസിൽ നാളെ മുതൽ അഞ്ചു ശതമാനം വർധനയുണ്ടാകും ച്ചുതിയ വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബ്ബന്ധമാക്കും പരിഷ്കരിച്ച ജി

അഞ്ചുലക്ഷംരൂപ വരെ നികുതിബാധക വരുമാനുമുള്ളവർക്ക് നികുതിയില്ല

കേരളത്തിൽ വാഹനങ്ങളുടെ റോഡ് നികുതി വിലയുടെ ഒരു ശതമാനം വർധിക്കും മദ്യവിലയിൽ രണ്ട് ശതമാനം നികുതി വർധിക്കും സിനിമാ ടിക്കറ്റിനുമേൽ ജി എസ്

ബാങ്ക് വായ്പയ്ക്ക് പലിശ നിർണയത്തിന് പുതിയ മാനദണ്ഡം നടപ്പാക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി ബാങ്ക് പ്രവർത്തനം റിസർവ് ബാങ്ക് നിർദ്ദേശത്തെ തുടർന്ന് ഗവൺമെന്റ് ഇടപാടുകൾ നടത്തുന്ന ബാങ്ക് ശാഖകൾ ഇന്ന് പ്രവർത്തിക്കുന്നു

നെഫ്റ്റ് സേവനങ്ങൾ ഇന്നും ലഭ്യമാക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദായനികുതി ഓഫീസുകളും ജി എസ് ടി

നികുതിദായകർക്ക് റിട്ടേൺഫയൽ ചെയ്യാനുള്ള സൌകര്യം ഓഫീസുകളിൽ ഒരുക്കിയിട്ടുണ്ട്

ഹൈദരാബാദിൽ വൈകിട്ട് നാലിന് തുടങ്ങുന്ന ആദ്യമത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയിൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും ചെന്നെയിൽ രാത്രി എട്ടിന് തുടങ്ങുന്ന മത്സരത്തിൽ ചെന്നെ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും പാരാ തായ്ക്കൊണ്ടോ രാജസ്ഥാനിൽ നടന്ന പാരാ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കേരളം രണ്ട് സ്വർണ്ണവും ഒരു വെള്ളിയും മൂന്ന് വെങ്കലുമടക്കം ആറ് മെഡൽ കരസ്ഥമാക്കി

ഒരാളുടെ നില ഗുരുതരമാണ്

ഇതിന്റെ ഭാഗമായി നിട്ടുന്ന് മിന്നൽ പരിശോധനയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻതോതിൽ പാറ മണൽ മയക്കുമരുന്ന് എന്നിവ പിടിച്ചെടുത്തു

പൊലീസ് സ്റ്റേഷനുകളെ അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് ജില്ലാ പൊലീസ് മേധാവി നേരിട്ട് റെയ്ഡ് നടത്തിയത്

തൃമിഴ്നാ്ട്ടിലെ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും കഞ്ചാവ് വാങ്ങി പാറ്റത്തോട് ഭാഗത്ത് വിൽപനയ്ക്കായി ബസിൽ വരവേ പൂപ്പാർയ്ടിൽ വച്ചാണ് ഇയാൾ പിടിയിലായത്

പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു മരണം മണക്കുന്ന വീട് കരഞ്ഞു പെയ്യുന്ന മഴ കുഞ്ഞാവിന്റെ പുതപ്പ് തുടങ്ങി നിരവധി കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്

അങ്കണം സാഹിത്യ പുരസ്കാരം യുവ കലാ സാഹിത്യ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്

കരുണാകരൻ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും സ്വാതന്ത്ര സമര സേനാനിയുമായ യു

കരുണാകരൻ മാസ്റ്റർ നിര്യാതനായി